സുപ്രധാന മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിന് ഊന്നൽ

കൊറോണ വൈറസ്ട് ബാധിച്ച് ഇറാനിൽ രണ്ട് മരണം

റോമൻ ഇനങ്ങളിൽ ഇന്ത്യൻ ഗുസ്തിക്കാർക്ക് അഞ്ച് മെഡലുകൾ

പ്രതിരോധം വ്യാപാരം ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടികൾ ചർച്ചയാകും സന്ദർശനത്തിനിടെ യു

അഹമ്മദാബാദ് ആഗ്ര ന്യൂഡൽഹി എന്നിവിടങ്ങളിലാണ് അമേരിക്കൻ പ്രസിഡന്റ് എത്തുക

എസുമായുള്ള ബന്ധം ഇന്ത്യയൂടെ ഏറ്റവും പ്രധാന ബന്ധങ്ങളിലൊന്നായി പരിണമിച്ചുവെന്ന് ആദ്ദേഹം പറഞ്ഞു ഭീകരതയെ ചെറുക്കുന്നതിലും സമാധാനപരവും സസ്ക്കണ്സ്റ്റുമായ ഇന്തോ പസഫിക് മേഖല ഉറപ്പാക്കുന്നതിലും ഇരു രാജ്യങ്ങളു്ടുടയും അഭൂതപൂർവമായ താൽപ്പര്യങ്ങൾ ഒത്തുചേരുന്നുവെന്നും പിദേശകാര്യ സെക്രട്ടറി കൂട്ടിച്ചേർത്തു

സി

എ ഏപ്രിൽ ആദ്യവാരത്തിൽ രൂപീകരിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി രാംവിലാസ് പസ്വാൻ അറിയിച്ചു

ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ നിയമവിരുദ്ധമായ കച്ചവടം തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നിയമവിരുദ്ധമായ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തി പിഴ ചുമത്താൻ അതോറിറ്റിക്ക് അധികാരമുണ്ടാവും

ഒന്നര മാസത്തിനുള്ളിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു

ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ പ്രതിനിധികളും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗം മരുന്നുകൾക്കുള്ള ചേരുവകളുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്തു ചൈനയിൽ നിന്നുള്ള മരുന്ന് ലഭ്യത പ്രതിസന്ധിയിലാകുന്ന സാഹചര്യത്തിൽ മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നതിന് പിന്നാലെയാണ് നിതി ആയോഗ് സി ഇ ഒ അമിതാഭ് കാന്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നത് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറച്ച് ആഭ്യന്തര മരുന്നുൽപ്പാദനം വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്

വൈറസിനെതിരായി വാക്സിനുകളും ചികിത്സയും വികസിപ്പിക്കുന്നതൽ ഇത് നിർണ്ണായകമാകും

ഓസ്റ്റിനിലെ ടെക്സസ് യൂണിവേഴ്സിറ്റി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് എൻ

എച്ച് എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘമാണ് ചൈനീസ് ഗവേഷകർ ലഭ്യമാക്കിയ വൈറസിന്റെ ജനിതക ഘടന പഠിക്കുകയും സ്പൈക്ക് പ്രോട്ടീൻ എന്ന പ്രധാന ഭാഗത്തിന്റെ സാമ്പിൾ വികസിപ്പിക്കുകയും ചെയ്തത് ക്രയോജനിക് ഇലക്ട്രോൺ മൈക്രോസ് കോപ്പി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അവർ സ്പൈക്ക് പ്രോട്ടീൻ ചിത്രീകരിച്ചു ഈ കണ്ടെത്തലുകൾ സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ചു

കൊറോണ വൈറസ് ബാധ തടയുന്നതിനും രോഗം ബാധിച്ചവരെ ചികിത്സിക്കുന്നതിനുമുള്ള പുതിയ പ്രോട്ടീനുകൾ വികസിപ്പിക്കാൻ ശാസ്ത്രജ്ഞരെ ഈ മാതൃക സഹായിക്കും

ഐ വി

കൊറോണ നിരീക്ഷണത്തിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്ന ആളുടെ പരിശോധനാഫലം വിപരീതമാണെന്ന് കണ്ടെത്തി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്ന വിദ്യാർത്ഥിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് രണ്ടാമത്തെ പരിശോധനാ ഫലവും വിപരീതമായിരുന്നു ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് വിദ്യാർത്ഥിയെ വിട്ടയയ്ക്കുന്നതിൽ തീരുമാനമെടുക്കും

ഇസ്ലാമിക രാജ്യങ്ങളിലെ ആദ്യ കൊറോണ മരണ്മാണ് ഇറാനിൽ റിപ്പോർട്ട് ചെയ്തത്

ചൈനയ്ക്ക് പുറത്തുള്ള ഏഴാമത്തെയും എട്ടാമത്തെയും കൊറോണ വൈറസ് മരണമാണ് ഇറാനിലേത്

ഇന്നലെ ജമ്മുവിൽ പൊതുജനങ്ങളുടെ പരാതി കേൾക്കുന്നതിനിടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ദീർഘകാലമായി നിലനിൽക്കുന്ന പൊതു ആവശ്യങ്ങളും പരാതികളും പരിഹരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിമാർ പറഞ്ഞു

ന്യൂഡൽഹിയിൽ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം

പതിനായിരം പുതിയ കാർഷിക ഉത്പാദക സംഘങ്ങൾ രൂപീകരിച്ച് ഒന്നര ലക്ഷം തൊഴിലവസരങ്ങൾ രാജ്യത്ത് ഉറപ്പാക്കും പിന്നാക്ക ഗോത്രവിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ജില്ലകളിലായിരിക്കും ഇത്തരം കാർഷിക ഉത്പാദക സംഘങ്ങൾ രൂപീകരിക്കുക

സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുണ്ണിതിന്റെ സുതാര്യത ഉറപ്പു വരുത്താൻ സമിതിക്ക് രൂപം നൽകുമെന്നും ശ്രീ

കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയവും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും മേളയിൽ പങ്കെടുക്കുന്നുണ്ട് ജർമ്മൻ വിദേശകാര്യ മന്ത്രി ഹെയ്ക്കോ മാസുമായി ശ്രി

ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധത്തിൽ ജർമ്മനിയുടെ ഇടപെടലിന് അദ്ദേഹം നന്ദി അറിയിച്ചു

ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കായാണ് ശ്രീ

കിസാൻ ക്രഡിറ്റ് കാർഡിന്റെയും പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെയും പുരോഗതി വിലയിരുത്താൻ ചേർന്ന യോഗത്തിലാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയത്

ഗതാഗത നിയന്ത്രണത്തിനായി പരിശീലനം നേടിയ എൻ

സി എൻ

എറണാകുളത്ത് നിന്ന് ബംഗളുരുവിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം മരിച്ചവരിൽ മൂന്ന് സ്ത്രീകൾ ഉണ്ടെന്നാണ് സൂചന

ഇന്നലെ അഷു ആദിത്യ കുന്ദു ഹർദീപ് എന്നിവർ വിവിധ വിഭാഗങ്ങളിൽ വെങ്കലം സ്വന്തമാക്കി

ബ്രസീലിറ്റുന്റ യിഗോർ കോൽഹയുമായുള്ള മത്സരത്തിൽ ആദ്യ ക്ക്യിമിൽ മുന്നിൽ നിന്ന കശ്യപ് പരിക്കേറ്റതിനെ തുടർന്ന് മൂന്നാം ഗെയിമിൽ പിൻമാറുകയായിരുന്നു

ജർമ്മനിയുടെ വോന്നി ലിയയെയാണ്ട് സൈന തോൽപ്പിച്ചത്